ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ ആത്മ നിർഭർ ഭാരതിന്റെ നേട്ടമെന്ന് രാഷ്ട്രപതി

കടലിൽ തകർന്നു വീണു

യ്ക്കെതിരെ ഈസ്റ്റ് ബംഗാളിന് വിജയം

പിടിമുറുക്കുന്നു

വാക്സിനേഷൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം

കോവിഷീൽഡ് കോവാക്സിൻ എന്നീ ര്ണ്ടൂ വാക്സിനുകളുടെ അടിയന്തിര ഉപയോഗത്തിന് രാജ്യത്ത് അനുമതി നൽകിയിരുന്നു വാക്സിനേഷനുമായി ്ബന്ധപ്പെട്ട പരിശീലന പരിപാടികളും ഡ്രൈ റണ്ണും രാജ്യത്ത് ഇതിനകം പൂർത്തിയായിട്ടുണ്ട്

ഈ വിജയം ആത്മ നിർഭർ ഭാരത് ഉദ്യമത്തിന്റെ വലിയ നേട്ടമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി

ആത്മ നിർഭർ ഭാരത് എന്നത് പ്രസ്ഥയം കേന്ദ്രീകൃതമായ ക്രമീകരണങ്ങളോ മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കലോ അല്ല മറിച്ച് സ്വയംപര്യാപ്തതയിലേക്ക്ട് രിജ്യത്തെ നയിക്കുന്നത്തിനുള്ള ആത്മവിശ്വാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഓർക്കുന്നതിനുള്ള അവസരം കൂടിയാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്നും അദ്ദേഹം പറഞ്ഞു അഹിംസ ധാർമ്മികത ലാളിത്യം സുസ്ഥിര വികസനം എന്നീ ഗാന്ധിയൻ ആശയങ്ങൾ നമുക്ക് മാർഗ്ഗ ദർശനങ്ങളാണ്

ദുഷ്കരമായ ഈ കാലഘട്ടത്തിൽ പ്രവാസികളുടെ യാത്ര സുഗമമാക്കുന്നതിലൂടെ വിദേശകാര്യ മന്ത്രാലയവും വിദേശത്തുള്ള നയതന്ത്ര കാര്യാലയങ്ങളും വഹിച്ച പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു

അപകടകരമായ വസ്തുക്കൾ കൊണ്ടു പോകാൻ അനുമതിയുള്ള എല്ലാ വിമാന കമ്പനികൾക്കും കോവിഡ് വാക്സിൻ കൊണ്ടു പോകാം എന്നാൽ ഡ്രൈ ഐസിൽ ആവരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം ഈ അനുമതി ലഭിക്കാത്തും യാത്രക്കാരെ കൊണ്ടു പോകുന്നതുമായ വിമാനങ്ങളിലും വാക്സിൻ കൊണ്ടു പോകാവുന്നതാണ് ഇതിനായി അവർ പ്രത്യേകാനുമതി നേടണമെന്നും ഡി ജി

എ സർക്കുലറിൽ വൃക്തമാക്കുന്നു

എല്ലാ ജില്ലകളിലും വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുണ്ട്

ഏഴ് കുട്ടികളെ സുരക്ഷിത്രി സ്ഥാനത്തേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു

ഇന്ത്യയുടെ വാക്സിനേഷൻ പരിപാടിയെ ബാധിക്കാതെ കോവിഷീൽഡ് വാക്സിൻ ലഭ്യമാക്കണമെന്നാണ് കത്തിലുള്ളത്

ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ജക്കാർത്തയിൽ നിന്നും വെസ്റ്റ് കാളിമന്ദൻ പ്രവിശ്യയിലേക്ക് പറന്ന ശ്രീവിജയ എയറിന്റെ വിമാനമാണ് ദുരന്തത്തിനിരയായത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും കണ്ടെടുത്തായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ചൈനീസ് സൈനികന് വഴിതെറ്റിയതാണെന്നാണ് സൂചന

ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നീണ്ട ചർച്ചകൾക്കുശേഷം ക്രൂ മാറ്റത്തിനായി ജപ്പാനിലേയ്ക്ക് അയക്കാൻ കപ്പൽ തീരുമാനമായി

മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയായിരുന്ന ലഖ്വിക്കെതിരെയുള്ള പാക്ക് കോടതിയുടെ ശിക്ഷാവിധി പ്രഹസനമാണെന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചതിനു തൊട്ടുപിന്നാലെയാണ് യു എസ്സിന്റെ പ്രിതികരണം

ട്രംപിന്റെ അക്കൌണ്ടിൽ നിന്നുളള ട്വീറ്റുകൾ സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് തീരുമാന്യ്മെന്ന് ടിറ്റർ പ്രസ്താവനയിലൂടെ അറിയിച്ചു

എസ് പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമസംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇംപീച്ച്മെന്റ് നീക്കത്തിനൊരുങ്ങുകയാണ് ഡെമൊക്രാറ്റുകൾ

സർക്കാർ ഓഫിസുകളുടെ ഹരിത ഓഡിറ്റിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാറും നിർവഹിക്കും